സംസ്ഥാനത്ത് ഇന്ന് ആദ്യമായി പതിനായിരം കടന്ന് പ്രതിദിന കോവിഡ് ബാധ

പൊതുസ്ഥലങ്ങളും റോഡുകളും കൈയേറി സഞ്ചാര സ്വാതന്ത്രൃം തടസ്സപ്പെടുത്തിയുള്ള സമരങ്ങൾ പാടില്ലെന്ന് സുപ്രീം കോടതി

ഗ്രാമീണമേഖലയിൽ എല്ലാ വീടുകൾക്കും കുടിവെള്ള കണക്ഷനുകൾ ലഭ്യമാക്കുന്ന പദ്ധതി ജലജീവൻ മിഷന്റെ സംസ്ഥാന തല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും

സി മൊയ്തീൻ

തിരുവനന്തപൂരം സ്വർണ കള്ളക്കടത്ത് കേസിൽ ഭീകരവാദ ബന്ധത്തിന് തെളിവ് ഹാജരാക്കാൻ കോടതി എൻ ഐ എ യോട് ആവശ്യപ്പെട്ടു

ശൈലജ അറിയിച്ചു

പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹിയിലെ ഷഹീൻബാഗിൽ പൊതുനിരത്ത് കയ്യേറി നടത്തിയ സമരങ്ങൾ നീക്കണം എന്ന് ആവശൃപ്പെട്ടുള്ള ഹർജിയിൽ പുറപ്പെടുവിച്ച വിധിയിലാണ് സുപ്രീംകോടതി നിലപാട് വ്യക്തമാക്കിയത് സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഭരണഘടനാപരമായ അവകാശം ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കണമെന്ന് ജസ്റ്റിസ് സജ്ഞയ് കിഷൻ കൌളിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ജഡ്ജിമാരുടെ ബഞ്ച് നിരീക്ഷിച്ചു

തുടർന്ന് ആലപ്പുഴ മണ്ഡ്ല്ത്തിൽ മന്ത്രി ഡോ ടി എം തോമസ് ഐസക്കൂം അമ്പലപ്പുഴ മണ്ഡലത്തിൽ മന്ത്രി ജി സുധാകരനും ചേർത്ത്ല് മണ്ഡലത്തിൽ മന്ത്രി പി തിലോത്തമനും വ്യീഡ്ിയോ കോൺഫറൻസ് വഴി മണ്ഡലതല ഉദ്ഘാടനം നിർപ്ഹിക്കും

സി മൊയ്തീൻ ആലപ്പുഴ നഗരസഭയിലെ ആരോഗൃ വിഭാഗം ജീവനക്കാരെയും ശുചീകരണ തൊഴിലാളികളെയും ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിലെ ശുചിത്വ നഗരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി സ്വച്ച് ഭാരത് മിഷൻ ഈ വർഷം നടത്തിയ സർവ്വേയിലും നിരീക്ഷണത്തിലും മാലിന്യ സംസ്കരണത്തിൽ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച നഗരങ്ങളിൽ ആലപ്പുഴ നഗരസഭ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു

ശൈലജ സംസ്ഥാനത്തെ ആദ്യ സംയോജിത കുടുംബാരോഗൃ കേന്ദ്രം തിരുവനന്തപുരത്ത് പാങ്ങപ്പാറയിൽ പ്രവർത്തനമാരംഭിച്ചു മന്ത്രി കെ കെ ശൈലജ വീഡിയോ കോൺഫറൻസിലൂടെ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

ഒന്നര ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ഈ ആശുപത്രി ഏറെ പ്രയ്യോജനം ചെയ്യുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി കൂട്ടക്ട്പള്ളി സുരേന്ദ്രൻ പറഞ്ഞു

കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ യു എ

എന്നാൽ സ്വർണ്ണക്കടത്തിന് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് എൻഐഎ കോടതിയിൽ പറഞ്ഞു വലിയ അളവിൽ സ്വർണ്ണം കടത്തിയിട്ടുണ്ട് വാദം തുടരുകയാണ് ജാമ്യാപേക്ഷയിൽ ചൊവ്വാഴ്ച വിധി പറയും

എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത വോയ്സ് ഇസ്രയേലി കമാൻഡോകൾ പരിശീലിക്കുന്ന ഏറ്റവും അപകടകരമായ പ്രതിരോധ കലയായ ക്രാവ് മാഗ അടിസ്ഥാനമാക്കിയുള്ള പരിശീലനമാണ് സ്തീകൾക്കും പെൺകുട്ടികൾക്കും നൽകിയത് ആയുധിമില്ലാതെ സ്വയം പ്രതിരോധിക്കാനുള്ള പരിശീലനമാണ് ഇതിൽ പ്രധാനം അക്രമങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുക് അ്ത്തരം സാഹചര്യങ്ങളിൽ എത്തിപ്പെടാതിരിക്കുന്നതിനുള്ള മുൻകരുതലുകൾ പകർന്നു നൽകുക അക്രമ സാഹചര്യങ്ങളീൽ മനോധൈര്യത്തോടെ അക്രമിയെ നേരിടുന്നതിന് മ്മൂൻസികവും കായികവുമായി സജ്ജരാക്കുക എന്നിവയാണ്

പരിശീലനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾ ബസുകളിലെ ശല്യപ്പെടുത്തലുകൾ തടഞ്ഞതും മാലപൊട്ടിക്കാൻ വന്നവരെ പ്രതിരോധിച്ചതുമായ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താത്പര്യമുള്ളവർ ജില്ലകളിലെ സെൽഫ് ഡിഫൻസ് നോഡൽ ഓഫീസർക്ക് അപേക്ഷ നൽകണം

ഈ വർഷം ലക്ഷദ്വീപിൽ നിന്നും ഇത് ഏഴാം തവണയാണ് കടൽ വെള്ളരി കള്ളക്കടത്ത് പിടി കൂടുന്നത് രക്തദാന വാരാചരണം ദേശീയ സന്നദ്ധ രക്തദാന വാരാചരണത്തിന്റെ സമാപന പരിപാടി മന്ത്രി കെ

രക്ത സന്നിവേശ മേഖലയിലെ അറിവും പ്രാഗൽഭ്യവും വർധിപ്പിക്കുന്നതിനായുള്ള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പോളിസി ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിനെ രക്ത്യസ്ന്നിവേശ പ്രവർത്തനങ്ങൾക്കായുള്ള സ്റ്റേറ്റ് ന്റേട്ട്ഡ്ൽ സെന്റർ ആയി ഉയർത്തുന്ന പ്രഖ്യാപനവും മന്ത്രി നട്ടത്തി

ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കുട്ടികളുടെ അന്ധത നിർമ്മാർജന മാർഗ ങ്ങളെ കുറിച്ചുള്ള ബോധവത്ക്കരണം ശക്തമാക്കാൻ തീരുമാ നിച്ചതായി മന്ത്രി കെ

ക്ഷീരഗ്രാമം പദ്ധതി പാൽ ഉൽപ്പാദനത്തിൽ സ്വയംപര്യാപ്തത ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ക്ഷീരഗ്രാമം പദ്ധതിയ്ക്ക് തൃശൂർ ജില്ലയിൽ തുടക്കമായി എടവിലങ്ങ് പാണഞ്ചേരി പഞ്ചായത്തുകളിലായാണ് പദ്ധതി നടപ്പാക്കുന്നത്

മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലത്ത് ശസ്ത്രക്രിയയെ തുടർന്ന് കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ആത്മഹത്യ ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷന്റെ നിർദ്ദേശം